സ്വർണത്തിന്റെ അ്ന്നധികൃത വ്യപാരം തടയുന്നതിന് കച്ചവട സ്ഥാപനങ്ങളിൽ ഉദ്ദ്യോഗ്ശ്സ്ഥരെ നിയമിക്കുന്നതുൾപ്പെടെ കർശന നടപട്ടികൂൾ ്സ്വീകരിക്കുമെന്നും ശ്രീ

സംസ്ഥാന സർക്കാരുകൾ സംവരണതത്വം പാലിക്കാൻ ബാധ്യസ്ഥരല്ലെന്ന സുപ്രീംകോടതി വിധി ആശങ്കയുളവാക്കുന്നതാണെന്ന് പട്ടികജാതി പട്ടിക വർഗ വകുപ്പ് മന്ത്രി എ

നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഇതു സംബന്ധിച്ച തുടർ നടപടികൾ വിഷയത്തിൽ സ്വീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു എന്നാൽ സുപ്രീംകോടതി വിധി കേരളത്തിലെ നിയമനങ്ങളെയോ സ്ഥാനക്കയറ്റങ്ങളെയോ ബാധിക്കില്ലെന്നും മന്ത്രി വ്യക്തമാക്കി

തൊഴിലാളികളെ പീഡിപ്പിക്കുന്ന രീതികൾക്കെതിരെ നിയമപരമായ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും മന്ത്രി അറിയിച്ചു

സ്വർണവില വീണ്ടും സർവ്കാല റെക്കോർഡിൽ